രാജി നിരുപാ ധികം പാർട്ടി പിളരില്ലെന്നും മാത്യു ടി തോമസ് ു

മുഖ്യമന്ത്രി യുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ രാവി ലെയെത്തിയാണ് അദ്ദേഹം പിണറായി വിജയന് രാജി ക്കത്ത് കൈമാറിയത് രണ്ടാം തവണയാണ് കാലാവധി തികയും മുമ്പ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജി വെക്കു ന്നത് രണ്ടര വർഷത്തിനു ശേഷം മന്ത്രി സ്ഥാനം മാറാമെന്ന ജെ ഡി എസ് കേരളഘടകത്തിലെ ഇരുവി ഭാഗങ്ങളും തമ്മിലെ ധാരണപ്രകാരമാണ് മാത്യു ടി തോമ സിന്റെ രാജി മാത്യു ടി തോമസിനു പകരം ചിറ്റൂർ എം എൽ എ എ

ഗവർണറുടെ അനു മതി ലഭിച്ചശേഷം നാളെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തേക്കും മാത്യു ടി തോമസിന്റെ വകുപ്പുകൾ തന്നെ യായിക്കും കൃഷ്ണൻകുട്ടിക്കും നല്കുക

പാർട്ടി പിളരില്ലെന്നും തിരുവനന്ത പുരത്ത് മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നല്കിയശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ ഭരണകാലത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനായെന്നും എന്നാൽ പൂർണ്ണ സംതൃപ്തനല്ലെന്നും മാത്യു ടി തോമസ് പറഞ്ഞു സ്ഥാനമാനങ്ങളോട് താത്പര്യമില്ലെന്നും അദ്ദേഹം അറി യിച്ചു

ഇടതുപക്ഷത്തി നൊപ്പമാണ് സോഷ്യലിസ്റ്റ് ആശയക്കാരുടെ സ്വാഭാ വികസ്ഥാനമെന്നും അദ്ദേഹം വൃക്തമാക്കി മന്ത്രിയാകുന്ന കൃഷ്ണൻകുട്ടിയിൽ നിന്നും മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നതായും മാത്യു ടി തോമസ് പറ ഞ്ഞു

പുതിയ സംസ്ഥാന അധ്യക്ഷനെ ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നും അദ്ദേഹം അറി യിച്ചു

സി കെ നാണു എം എൽ എയും സന്നിഹിതനായിരുന്നു

എം ഷാജിയ്ക്ക് അംഗത്വം നഷ്ടമായെന്ന് കാണിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു ഹൈക്കോടതി വിധിയ്ക്ക് നല്കിയിരുന്ന രണ്ടാഴ്ചത്തെ സ്റ്റേ അവസാനിച്ച സാഹ ചര്യത്തിലാണ് നിയമസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് ഹൈക്കോടതി വിധിയ്ക്കെതിരെ ഷാജി സുപ്രീംകോട തിയെ സമീപിച്ചിരുന്നെങ്കിലും ഹൈക്കോടതി ഉത്തരവി നെതിരെ രേഖാമൂലം ഒരു നിർദ്ദേശവും ലഭിച്ചിരുന്നില്ല നാളെ തന്നെ സുപ്രീംകോടതിയിൽ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി ലിസ്റ്റ് ചെയ്യിക്കാൻ ഷാജി യുടെ അഭിഭാഷകർ ശ്രമം തുടങ്ങി ഷാജിയ്ക്ക് നിയമ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും എന്നാൽ നിയ മസഭാംഗമെന്ന നിലയിൽ ആനുകൂലൃങ്ങൾ കൈപറ്റാ നാവില്ലെന്നും സുപ്രീംകോടതി വാക്കാൽ പരാമർശം നടത്തിയിരുന്നു

ഹൈക്കോടതി വിധിയ്ക്കെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇൌയാഴ്ച പരിഗണിക്കുമെന്നും അദ്ദേഹം ഒരു വാർത്താചാനലിനോട് പറഞ്ഞു നിയമ സഭാംഗത്വത്തിന് അയോഗ്യത കൽപ്പിച്ച ഹൈക്കോടതി വിധിയ്ക്ക് ഏർപ്പെടുത്തിയ സ്റ്റേ അവസാനിച്ചതും സുപ്രീംകോടതി വിധി നൽകാത്തതുമാണ് അംഗത്വം നഷ്ട മാ കാൻ കാരണ മെന്ന് അദ്ദേഹം പറഞ്ഞു കോടതി വിധി മാനിക്കുന്നവരും നിയമവഴി യിൽ സഞ്ചരിക്കുന്നവരുമാണ് ലീഗുകാരെന്ന് ഷാജി പറഞ്ഞു

പരാതി അന്വേ ഷിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു ശശി ലൈംഗി കാതിക്രമം നടത്തിയിട്ടില്ലെന്നും എന്നാൽ ഫോണിലൂടെ മോശമായി പെരുമാറിയെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചനയുണ്ടെന്നാണ് വിവരം മന്ത്രി എ കെ ബാലനും പി കെ ശ്രീമതി എം എൽഎ യും അടങ്ങിയ കമ്മീഷനാണ് ശശിക്കെതിരായ ആരോ പണം അന്വേഷിച്ചത് പാർട്ടി നിർദ്ദേശപ്രകാരം ശശി നല്കിയ വിശദീകരണവും കൂടി പ്രിഗണിച്ചായിരിക്കും അദ്ദേഹത്തിനെതിരായ നടപടി സംസ്ഥാനകമ്മറ്റി തീരുമാനിക്കുക

പാർട്ടി തന്റെ ജീവന്റെ ഭാഗമാ ണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു

കണ്ണൂർ ഡിവൈഎസ്പിക്കും സി ഐക്കും എതിരെ നടത്തിയ പ്രസംഗത്തിനെതിരായ കേസിലാണ് ജാമ്യം ഇന്ന് രാവിലെയാണ് കോഴിക്കോട് സബ്ജയിലിൽ നിന്ന് സുരേന്ദ്രനെ കണ്ണൂരിൽ കൊണ്ടുവന്നത് ജാമൃം ലഭിച്ചെ ങ്കിലും വേറെയും കേസുകൾ സുരേന്ദ്രനെതിര നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് തത്കാലം പുറത്തിറങ്ങാനാകുന്നില്ല

ഗവൺമെന്റിന്റെ പോക്ക് അപകടത്തിലേക്കാ ണെന്നും മുഖൃമന്ത്രിയുടെ നടപടി വിനാശകാലേ വിപ രീത ബുദ്ധിയാണെന്നും അദ്ദേഹം പറഞ്ഞു സുരേന്ദ്ര നെതിരെയെടുത്ത കേസുകളെല്ലാം തെറ്റാണെന്നാണ് പൊലീസുകാർ ഇപ്പോഴും പറയുന്നതെന്നും ഇതിന് ഉത്ത രവാദികളായവരെ പിരിച്ചുവിടണമെന്നും ശ്രീധരൻപിളള ആവശ്യപ്പെട്ടു

സുരക്ഷാപ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ നിരോധനാജ്ഞ ഒരാഴ്ചകൂടി നീട്ടണമെന്ന നിലപാടി ലാണ് പൊലീസ്

ശബരിമലയിൽ നിലവിൽ സ്ഥിതി പൊതുവെ ശാന്തമാണ്

സാക്ഷരതാ മിഷനും നിയമസഭയും ചേർന്ന് സംസ്ഥാ നത്തെ എല്ലാ വാർഡുകളിലും ഭരണഘടനാ സാക്ഷരതാ ജനകീയ വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ സംസ്ഥാനതല ചടങ്ങ് തിരുവനന്തപുരത്ത് സ്പീക്കർ പി

ചടങ്ങിന് മുന്നോടിയായി ഭരണഘടനാ സാക്ഷരതാ സന്ദേശ റാലിയും സംഘടിപ്പിച്ചിരുന്നു

ഭരണഘടനാ ദിനത്തിന്റെ ഭാഗമായി ഇന്നുരാവിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഭരണഘടനയുടെ ആമുഖവും മൌലിക കർത്തവൃങ്ങളും അസംബ്ലികളിൽ വായിച്ചു ജില്ലാ കലക്ടർമാരും വകുപ്പ് മേധാവികളും ഭര ണഘടനയുടെ ആമുഖം വായിക്കാൻ സ്ഥാപനങ്ങളിൽ ക്രകമീ ക ര ണ ങ്ങൾ ഏർപ്പെടുത്തണ മെന്നും പൊതുഭരണവകുപ്പ് നിർദ്ദേശം നല്കിയിരുന്നു

ഇവരിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ലലലലലലലലലലലല നവോത്ഥാന ചരിത്രത്തെയും ഭരണഘടനയുടെ അന്ത സ്സ്ത്തെയെയും കുട്ടികളുടെ അവകാശങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്താൻ സംസ്ഥാന തലത്തിൽ സംഘിടിപ്പിക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണ റായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കന്ററി സ്കൂളിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ വിദ്യാലയങ്ങളിലും നവോത്ഥാന ചരിത്ര പ്രദർശനം പ്രഭാഷണം ചരിത്രബോധനം റിയാ ലിറ്റി ഷോ എന്നിവ നടത്തും

അന്തരിച്ച നിയമസഭാംഗം പി ബി അബ്ദുൾ റസാഖിന് ചരമോപചാരം അർപ്പിച്ച് നാളെ സഭ പിരിയും തുടർദിവസങ്ങളിൽ സബ്ജക്റ്റ് കമ്മറ്റികളുടെ പരിശോധനയ്ക്ക് അയക്കേണ്ട ബില്ലുക ളുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ പരിഗണിക്കും

നിയമനിർമ്മാണത്തിനായി നീക്കിവെച്ച മറ്റ് ദിവസങ്ങ ളിൽ കാര്യോപദേശക സമിതി തീരുമാനിക്കുന്ന ബില്ലു കളാണ് നിയമസഭയുടെ പരിഗണനയ്ക്കു വരിക ശബരിമലയിലെ സ്ത്രീപ്രവേശനം മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധുനിയമനം പ്രളയാനന്തര പുനരധി വാസ പ്രവർത്ത നങ്ങൾ ഉൾപ്പെടെ പ്രതി പക്ഷം ഉന്നയിക്കുമെന്നതിനാൽ സമ്മേളനം പ്രക്ഷുബ്ധമാകാ നാനിടയുണ്ട്

ഏഴിമല നാവിക അക്കാഡമിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും രണ്ടാം ഘട്ട പ്രപ്രവർത്തന്ങൾ രണ്ട് വർഷത്തിനകം പൂർത്തിയാകുമെന്ന് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു

ടിറ്ററിലൂടെയാണ് ഭീകരാക്രമണ ഇരകളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സ്മരിച്ചത്

ഇന്നല അന്ത രിച്ച മുൻകേന്ദ്ര റെയിൽവെ മന്ത്രി സി കെ ജാഫർ ഷെരീ ഫിന്റെ ഭൌതികദേഹം ഒരു മണിയോടെ ബെങ്കളൂരു ഖുദ്ദൂസ് സാഹിബ് ഖബർസ്ഥാനിൽ കബറടക്കും